ദേശാടന ജീവി വർഗത്തിന്റെ സംരക്ഷണത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇപ്പോഴും ഭീകര സംഘടനകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്

ഡിഗ്രി വരെ താപനില കൂടാൻ സാധൃത

തുടക്കമാകും

ദേശാടനം ചെയ്യുന്ന വന്യജീവി വർഗ്ഗത്തിന്റെ സംരക്ഷണത്തിനായുള്ള രാജ്യാന്തര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഒ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദേശാടന കിളികൾ സസ്തനികൾ ജലജീവികൾ തുടങ്ങിയവ അവയുടെ ദേശാടന പാതയിൽ നേരിടുന്ന അപകടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും അവയെ സംരക്ഷിക്കുന്നതിനായി രാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അധ്യക്ഷ പദവി ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു

അതീവ ഗൌരവത്തോടെ ഈ വിഷയങ്ങൾ കാണണമെന്നും ശക്തമായ നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു

ഡൽഹി ഷഹീൻ ബാഗിൽ പൌരത്വ ഭേദഗ്യൂട്സിയ്മത്തിനെതിരായി നടക്കുന്ന പ്രക്ഷോഭങ്ങളെ തുടർന്നുള്ള ഗ്രിയ്ാഗ്തക്കുരുക്കുകൾ സംബന്ധിച്ച ഹർജി പരിഗണിക്കുകയാർ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ കാ്തൂലാണെങ്കിലും അതിന് പരിധികൾ കൂടി ബാധകമാണെന്നും ജസ്റ്റിസ് എസ്

കൌൾ ജസ്റ്റിസ് കെ

പൊതുവിടങ്ങളിൽ മാർഗ്ഗതടസ്സം സൃഷ്ടിക്കാളത് മറ്റൊരിടത്തേക്ക് സമരം മാറ്റുന്നതിനായി പ്രതിഷേധക്കാരോട് കൂടിയ്ക്ക്കോചന നടത്തണമെന്ന് മുതിർന്ന അഭിഭാഷകരായ സഞ്ജയ് ്ഹെഗ്ഡേയോട് നിർദ്ദേശിച്ചു അഭിഭാഷകയായ സാധന രാമചന്ദ്രനും മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയും മധ്യസ്ഥ സമിതിയിൽ അംഗങ്ങളാണ്

എ അന്വേഷിക്കുന്ന മഹാരാഷ്ട്രയിലെ ഭീമ കൊറെഗാവ് കേസിൽ സമാന്തര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് മുംബൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഏതു സംഭവത്തിലും സമാന്തര അന്വേഷണം നടത്താൻ എൻ

എ നിയമത്തിലെ പത്താം അനുച്ഛേദം അനുവദിക്കുന്നുണ്ടെന്ന് നേരത്തെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി നവാബ് മാലിക് വ്യക്തമാക്കിയിരുന്നു

മന്ത്രിസഭ അംഗീകരിക്കുന്നതിന് മുമ്പ് ഇത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ ആരായുന്നതിനായി പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് ഉടൻ കരട് അയയ്ക്കും

മണ്ഡല പുനർനിർണയത്തിന്റെ ചുമതലയുള്ള നിയമകാര്യ മന്ത്രാലയത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം

ഇന്ത്യയെ ലക്ഷ്യംവച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹുദ്ദീൻ തുടങ്ങി നിരവധി ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ നിരന്തരം സഹായങ്ങൾ നൽകുന്നതായി ഇന്ത്യ വ്യക്തമാക്കി പാകിസ്ഥാനെതിരെ എഫ്

ടി എഫ് നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന എഫ്

ടി എഫ് പ്തീനറി സമ്മേളനത്തിൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിലനിർത്തുമോ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമോ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും

യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി ഉഭയകക്ഷി താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്തുന്നതിനും മാർച്ചിൽ ബ്രസൽസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായുള്ള ചർച്ചകൾക്കുമാണ് അദ്ദേഹം ബ്രസൽസിലെത്തിയത്

ചൈനയ്ക്ക് പുറത്ത് പ്പളർ കുറച്ചു മാത്രമേ രോഗം ബാധിച്ചിട്ടുള്ളൂ

ജപ്പാനിലെ ഡയമണ്ട് പ്രിൻസസ് കപ്പ്ലിക്ക് വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ മറ്റു കപ്പലുകൾ പിടിച്ചിട്ടേണ്ട്തില്ലെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു

ബ്രക്സിറ്റിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങൾ ഇനി പിന്തുടരേണ്ട കാര്യമില്ലെന്നും സ്വന്തമായി നിയമങ്ങൾ രൂപീകരിക്കാനാണ് ബ്രിട്ടൺ ഉദ്ദേശിക്കുന്നതെന്നും മുതിർന്ന നയതന്ത്രജ്ഞൻ മാർക്ക് ഫ്രോസ്റ്റ് ബ്രസൽസിൽ പറഞ്ഞു

ഇന്ന് ആറ് ജില്ലകളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്നലെയും ചൂട് സാധാരണ നിലയേക്കാൾ കൂടുതലായിരുന്നു

ഈ സാഹചര്യം കണക്കിലെടുത്ത് ദുരന്തനിവാരണ അതോറിറ്റി മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു നിർജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണം പകൽ സമയത്ത് ലഹരി പാനീയങ്ങൾ ഒഴിവാക്കുക തളർച്ചയോ ആരോഗ്യ പ്രശ്നങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രഥമ ശുശ്രൂഷ നൽകാനുക് വൈദ്യസഹായം തേടാനും ശ്രദ്ധിക്കണം കഴിവതും പകൽ പ്രസ്തുതൽ വൈകിട്ട് മൂന്നു വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരീക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നും മുന്നറിയിപ്പിൽ പ്രിയ്യുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മണി അന്തരിച്ചു

ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം കുമാരപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം മാധ്യമ മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്ക്കാരം നേടിയിട്ടുള്ള അദ്ദേഹം മാധ്യമ രംഗത്തെ ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു

ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലെ കെ

സോനിപത്തിലെ സായി കേന്ദ്രത്തിൽ കഴിഞ്ഞ വർഷം നടന്ന രണ്ടാമത് ദേശീയ ജാവലിൻ ത്രോ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാകാത്തിന്റെ പേരിലാണ് വിലക്കേർപ്പെടുത്തിയത്